മണ്ഡലങ്ങളിലെ പ്രചരണ്ട് ഉച്ച്സ്ഥായിയിൽ

വയനാട്ടിൽ നിന്നുള്ള ശ്രീധന്യ സുരേഷ് കുറിച്യ വിഭാഗ ത്തിൽ നിന്നുള്ള ആദ്യ സിവിൽ സർവ്വീസ് വിജയിയായി

തർക്കമുള്ളതും അവൃക്തത നിലനിൽക്കുന്നതുമായ പത്രികകളിലെ പരിശോധന ഇന്നും തുടരും ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ എണ്ണം അറിയാനാകു

നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ് കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്സഭാ തെരഞ്ഞടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽപ്രദേശ് സംസ്ഥാനങ്ങളിൽ തകൃതിയായി പ്രചരണം നടക്കുകയാണ്

ജെ

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച ഒഡീഷ സന്ദർശിക്കും

രാജീവിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ഇത്തരം നിലപാട് ആവർത്തിച്ചാൽ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ വാഗ്ദാനം ചെയ്ത മിനിമം വേതനം പദ്ധതിയിലൂടെ കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന

ലോക്സഭാ തെരെഞ്ഞെടുപ്പ് വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ചുള്ള മാർഗ്ഗരേഖകളും തെരെഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാർക്കും നൽകി സമ്മതിദാകരുടെ ജാതിയും സമുദായ വികാരവും ഉപയോഗപ്പെടു ത്തിയുള്ള വോട്ടഭ്യർത്ഥന നടത്തരുതെന്നും കമ്മീഷൻ നിർദേശി ച്ചു

ബിധാൻ നഗർ പോലീസ് കമ്മീഷർ ഗൃാബന്ത് സിംഗിനെയും കമ്മീഷണർ മാറ്റി

പകരം എൽ

പുനീതയ്ക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചുമതകളൊന്നും നൽകിയിട്ടില്ല

പാരമ്പര്യമനുസരിച്ച് പുതുവർഷത്തിന്റെ തുടക്കവും വേനലിന്റെ വരവും ആണ് ഈ ആഘോഷങ്ങൾ കൊണ്ടു വരുന്നതെന്നും സമൃദ്ധിയും സുഖവും ഉണ്ടാകട്ടെയെന്നും അദ്ദേഹം ഒരു സന്ദേശത്തിൽ ആശംസിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ജനങ്ങൾക്ക് ഉത്സവ ആശംസകൾ നേർന്നു

ഭരണകക്ഷിയായ മാലദ്വീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പിക്ക് തെരഞ്ഞെടുപ്പ് നിർണ്ണായകമാണ് മാലദ്വീപിൽ പ്രസിഡന്റഷ്യൽ ഭരണ സംവിധാനമാണെങ്കിലും നിർണ്ണായകമായ നിയമനിർമ്മാണങ്ങൾക്ക് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്

മെട്രോ റെയിൽവേസ്റ്റേഷനിലെ പാല്പ് സുര്ക്ഷിതമാണെന്ന് നീരജാണ് സാക്ഷ്യപ്പെടുത്തിയത്

ഒരു പ്രത്യേക സമുദായത്തിനെതിരായ വിദ്വേഷം വ്യാപിപ്പിക്കുന്ന വീഡിയോകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് കൈമാറ്റം ചെയ്ത് നായ്ക്കിനെ സഹായിച്ചെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം

ഐ

യിൽ നിന്നുള്ള ബി ടെക് ബിരുദധാരി കനീഷ്ക് കഠാരിയ ക്കാണ് ഒന്നാം റാങ്ക് ജയ്പൂർ സ്വദേശി അക്ഷത് ജെയിനിനാണ് രണ്ടാം റാങ്ക് രണ്ട് മലയാളികളാണ് പട്ടിക യിലുള്ളത്

ആലുവ കടുങ്ങല്ലൂർ സ്വദേശി ആർ

ശ്രീധന്യ സുരേഷ് ഉൾപ്പെട്ട് സിവിൽ സർവ്വീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയവ്രെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭി നന്ദിച്ചു

നെഞ്ചു വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും ഉടൻ ചികിൽസ നൽകാൻ ഡോക്ടർമാക്ക് കഴിഞ്ഞതും ഫലപ്രദമായെന്ന് കാക്കനാട് സ്വകാരൃ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോ പ്രതാപ് കുമാർ പറഞ്ഞു

ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസ്സെടുത്തത് കേവലമൊരു നിയമനടപടി എന്നതിനപ്പുറം കുട്ടികൾക്കെതിരായ ക്രൂരതയും അതിക്രമവും തടയാൻ നടപടികൾ വേണമെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു

ആനന്ദവല്ലിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരം വെള്ളായണിയിലെ വീട്ടു വളപ്പിൽ നടക്കും ശബ്ദ വൈവിധൃം കൊണ്ട് മലയാള സിനി മയിൽ തന്റേതായ ഇടം നേടാൻ ആനന്ദവല്ലിക്ക് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു